മരിച്ചുവരിൽ ചോറ്റാനിക്കര സ്വദേശിനിയും

സമ്മേളനം അനിശ്ചിതുകാലുത്തേക്ക് പിരിഞ്ഞു

വിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കു്മെന്ന് എക്സൈസ് മന്ത്രി

ഇന്ന് തുറക്കും പ്രദേശത്ത് പഴുതടച്ചു സുരക്ഷയുമായി പോലീസ്

മഹോൽസവത്തിനും ഇന്ന് തുടക്കം

മരിച്ചവരിൽ ഒരാൾ മലയാളിയാണ്

ന്യൂഡൽഹി കരോൾ ബാഗിലെ ഗുരുദ്വാര റോഡിലെ അർപ്പിത് പാലസ് ഹോട്ടലിൽ ഇന്ന് പൂലർച്ചെയാണ് തീപിടുത്തം ഉണ്ടായത്

ചോറ്റാനിക്കര സ്വദേശി ജയശ്രീയാണ് മരിച്ച മലയാളി രണ്ട് മലയാളികളെ കാണാതാവുകയും ചെയ്തു ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ്

അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സി ബി ഐ സമർപ്പിച്ച കൂറ്റപ്ത്തെച്ചൊല്ലിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണ് ഇന്ന് ് നീയമസഭ പിരിഞ്ഞത് കേസിൽ ടി വി രാജേഷ് എം

എ യ്ക്ക്രിതീര്ര കൊലക്കുറ്റം ചുമത്തി സമർപ്പിച്ച കുറ്റപത്രം ചൂണ്ടിക്കാട്ടി പ്രത്പക്ഷം ഉന്നയിച്ച അടിയന്തരപ്രമേയത്തിന് സ്പീക്കർ പി

ഇതേത്തുടർന്നാണ് പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയത് പിന്നീട് നിയമസഭാ കവാടത്തിൽ പ്രതിപക്ഷം കുത്തിയിരിപ്പ് സമരവും നടത്തി കുറ്റപത്രങ്ങളുടെ പേരിൽ അടിയന്തരപ്രമേയം പരിഗണിക്കുന്ന പതിവില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി

ഇതോടെ സഭയിൽ ബഹളമായി ആറ് പ്രാവശ്യം മുൻപ്രതിപക്ഷം കോടതി നടപടികൾ അടിയന്തരമായി കൊണ്ടു വന്നിട്ടുണ്ടെന്നും അപ്പോഴും അടിയന്തരപ്രമേയം പരിഗണിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ചോദ്യോത്തരം വിദ്യാലയപരിസരത്ത് ലഹരി വിൽക്കുന്ന വ്യാപാരസ്ഥാപനങ്ങൾ അടച്ചു പൂട്ടുമെന്നും കച്ചവടക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും എക്സൈസ് മന്ത്രി ടി

കച്ചവടക്കാർക്ക് ലഹരി എത്തിക്കുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തി നടപടിയെടുക്കും ലഹരി നിരോധന നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രഗവൺമെന്റിനോട് ആവശൃപ്പെട്ടതായും നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് തോന്നും പടി ബാറുകൾ അനുവദിച്ചെന്ന പ്രതിപക്ഷ ആരോപണവും മന്ത്രി നിഷേധിച്ചു

ഇന്ന് വൈകിട്ട് അഞ്ചിന് തിന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിദ്ധ്യത്തിൽ മേൽശാന്തി വി

വാസുദേവൻ നമ്പൂതിരി നട തുറക്കും

ആറ്റുകാൽ ഭഗവതിക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി ശിശുപാലൻ നായർ ആകാശവാണിയോട്

വിവിധ പഞ്ചായത്തുകളിലായി അടുത്ത മാസം രണ്ടുവരെയാണ് മൊബൈൽ ലോക് അദാലത്ത് പര്യടനം നടത്തുക ബാങ്ക് അക്കൌണ്ട് മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കുന്ന ബാങ്കുകളുടെ തെറ്റായ പ്രവണത അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് വീണ്ടും ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണ്ണറായി വിജയൻ അറിയിച്ചു മിനിമം ബാലൻസ് നിബന്ധനകളില്ലാത്ത് അക്കൌണ്ടുകളിൽ നിന്നും ബാങ്കുകൾ മിനിമം ബാലൻസ് പ്പിഴ് ഇൌടാക്കുന്നെന്ന പരാതി സംസ്ഥാനതല ബാങ്കിങ് സമിതിയെ ഗവൺമെന്റ് ് അറിയിച്ചിരുന്നു എന്നാൽ പരാതികളൊന്നും ല്ഭിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാനതല ബാങ്കിങ് സമിതി അറിയിച്ചതെന്നും പ്രിച്ചിടി തോമസിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി നിയമസഭ ചോദ്യം വരുന്ന വേനൽക്കാലത്ത് സംസ്ഥാനത്ത് കുടിവെള്ളക്ഷാമം ഉണ്ടാകാതിരിക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ

ക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിൽ വെള്ളം എത്തിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് പ്രളയത്തിൽ തകർന്ന തടയണകൾ പുനസ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ജൂൺ ഒന്നിന്കും ജില്ലയിലെ എൽപി മുതൽ പ്ലസ്ടു വരെയുള്ള മുഴുവൻ ക്സാസ് ്മുറികളും ഹൈടെക്കാക്കും ജില്ലയിൽ പ്ലസ് വൺ സീറ്റ് ഉൾപ്പെടെയുള്ളവ സഫലീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ വികസനപ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

കേശവൻ സ്മാരക ടൌൺഹാളിൽ നടക്കുന്ന ഫെസ്റ്റിന് പ്രവേശനം സൌജന്യമാണ്

ഐ ഡിസ്പെൻസറിയ്ക്കുള്ടു ഉദ്ഘാടനം മറ്റന്നാൾ വെള്ളയാംകുടിയിൽ മന്ത്രി ടി

എം മണിയുടെ അധ്യക്ഷതയിൽ പേരുന്ന സമ്മേളനത്തിൽ റോഷി അഗസ്റ്റിൻ എം

എ ജോയ്ക്സ് ജോർജ്ജ് എം പി എന്നിവർ പ്രഭാഷണം നടത്തും

തോമസ് ഐസക് ആലപ്പുഴയിൽ നിർവഹി ക്കും